ശൃംഖലകളിലൂടെ ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ ഓൺലൈൻ സേവനങ്ങൾ നിരീക്ഷണത്തിൽ

ഉണ്ടാകില്ലെന്ന് മന്ത്രി കെ കെശൈലജ വിഷയത്തിൽ അടിയന്തിര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്

മന്ത്രി കെ കൃഷ്ണൻകുട്ടി

സ്വീകരിക്കുമെന്ന് മന്ത്രി കെ

നേരിടും ജയിച്ചാൽ ഇന്ത്യ സെമിയിൽ കോപ്പ അമേരിക്ക സെമിയിൽ നാളെ ബ്രസീൽ അർജന്റീന പോരാട്ടം

രാമകൃഷ്ണൻ നിയമസഭ സംസ്ഥാനത്തെ ഓൺലൈൻ ഭക്ഷ്യ വിതരണ ശൃംഖലകളിലൂടെ ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി ടി

ഇത്തരം ശൃംഖലകളെ ശക്തമായി നിരീക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു മയക്കുമരുന്നുകളുടെ കടത്ത് തടയുന്നതിന് അന്തർസംസ്ഥാന വാഹനങ്ങളിലും പരിശോധന കർശനമാക്കി ലഹരിയുടെ വ്യാപനം തടയാൻ എൻഫോഴ്സ്മെന്റ് സംവിധാനവും ശക്തിപ്പെടുത്തി

സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിറ്റാൽ ആ കടകൾ പിന്നീട് നടത്താൻ അനുവദിക്കില്ല ലഹരിവസ്തുക്കൾ എത്ര ചെറിയ അളവിൽ പിടികൂടിയാലും ജാമ്യം കിട്ടാത്തവിധം നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു

ഡി

എസ് നിയമത്തിന്റെ പഴുതുകൾ അടയ്ക്കുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നിയമുസ്ഭയിൽ മന്ത്രി അറിയിച്ചു

സംസ്ഥാനത്ത് മെഡിക്കൽപ്രവേശനത്തിൽ പ്രിതീസന്ധി നിലനിൽക്കുകയാണെന്ന് ആരോപിച്ച് കൊണ്ടു വന്ന അടിയന്തരപ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്

എസ് അലോട്ട്മെന്റ് നടക്കുമെന്നും മന്ത്രി കെ

ഇതു സംബന്ധിച്ച ഓർഡിനൻസിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ അനുമതി കിട്ടിയില്ല ഫീസ് നിർണ്ണയം വൈകിയാൽ മുൻ വർഷത്തെ ഫീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താമെന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ അലോട്ട്മെന്റ് സംബന്ധിച്ച് അവ്യക്തതയില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തരപ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്നാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത് നീറ്റ് പരീക്ഷാഫലം വന്ന് ഒരു മാസമായിട്ടും പ്രവേശനനടപടികൾ തുടങ്ങിയില്ലെന്ന് അടിയന്തരപ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച വി

കൃഷ്ണൻകുട്ടി പ്രളയാനന്തര സാഹചര്യവും നിലവിലെ ജലലഭ്യതയും കണക്കിലെടുത്താകും നയരൂപീകരണം എന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു കൂടുതൽ തടയണകളും വെന്റിലേറ്ററുകളും സ്ഥാപിച്ച് ജലം സംഭരിക്കാൻ പദ്ധതി ഉണ്ടാക്കും

ഭൂഗർഭ ജലത്തിന്റെ അമിത ചൂഷണം തടയുന്നതിന് പുതുതായി കുഴൽക്കിണർ കുഴിക്കുന്നത് നിയന്ത്രിക്കും പുഴയോരങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പുമായി ചേർന്ന് നടപടിയെടുക്കും കടൽ ജലം ശുദ്ധീകരിച്ചുപയോഗിക്കുന്നത് ചിലവ് കൂടിയ പദ്ധതിയായതിനാൽ ആലോചിച്ച് മാത്രമേറ്റ്ടീരുമാനമെടുക്കൂവെന്നും ശ്രീ

ചിട്ടിയിലൂടെ പിരിച്ചെടുത്ത പണം നിക്ഷേപിച്ചിരുന്നത് കുമളിയിലെ ചിട്ടിക്കമ്പനിയിലെന്ന ഹരീത് ഫിനാൻസ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇതു സംബന്ധിച്ചും അന്വേഷണം തുടങ്ങി

രാജു സംസ്ഥാനത്തെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വനംവകൂപ്പ് നടപടി സ്വീകരിക്കുമെന്ന് വനംമന്ത്രി കെ

സ്വകാരൃഭൂമിയിൽ കണ്ടൽക്കാട് വച്ചു പിടിപ്പിക്കുന്നവർക്ക് ഏക്കറിന് നാലായിരം രൂപ സബ്സിഡി നൽകുന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് വനഭൂമിയിലെ യൂക്കാലിപ്സ് അകേഷ്യ പോലെയുള്ള പരിസ്ഥിതിക്ക് ഹാനികരമായ മരങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു അന്വേഷണം മൂന്ന് മാസം മുമ്പ് തിരുവനന്തപുരത്തെത്തി കാണാതായ ജർമ്മൻ സ്വദേശിനിയായ വിദേശ വനിതയുടെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി

ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്

ആയ്പിക്കു്ന്നം സ്വദേശി അനന്തു വാണ് അറസ്റ്റിലായത് ഇയാളെ പെൺകുട്ടിയുടെ ്വീട്ടിലെത്തിച്ച് തെളിവെടുപ്പു നടത്തും

പെൺകുട്ടി അപകടനില തര്യ്ക് ചെയ്തതായി ബന്ധുക്കൾ പറഞ്ഞു

കൊതുകുകളെ നിയന്ത്രിക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഫോഗിംഗ് തുടങ്ങി

ഐ വി ബാധിതർക്കുള്ള സമഗ്ര പ്രതിരോധ പോഷകാഹാര പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യും രോഗബാധിതരായ ആളുകളുടെ രോഗപ്രതിരോധശേഷിയും ജീവിത ഗുണമേന്മയും വർധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ എട്ട് വർഷമായി ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നത്

തൃശൂർ അതിരപ്പിള്ളി ഷോളയാർ വനമേഖലയിലെ പ്രധാന വിനോദസഞ്ചാരകേന്ദ്രങ്ങളെ ് കോർത്തിണക്കിക്കൊണ്ടാണ് തൃശൂർ ജില്ലാ ടൂറിസം കൌൺസിൽ മഴയാത്ര ഒരുക്കുന്നത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപന്റെ റിപ്പോർട്ട്

ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പാക്കാം എന്നാൽ ബംഗ്ലാദേശിന് സെമി സാധ്യതയെങ്കിലും നിലനിർത്തണമെങ്കിൽ ഇന്ന് ജയിച്ചേ മതിയാകൂ

ഇതിന്റെ പശ്ചാത്തലത്തിൽ ടീമിൽ കാര്യമായ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ കളത്തിലിറങ്ങുക വൈകിട്ട് മൂന്ന് മണിക്ക് ബർമിംഗ്ഹാമിലാണു മൽസരം

നാളെ പുലർച്ചെ ആറ് മണിക്കാണ് മൽസർം

ഇ പോസ് മെഷീൻ വിതരണം ദ്രപാലക്കാട് ഡിജിറ്റൽ ഇന്ത്യാ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും ഇ പോസ് മെഷീൻ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ ഡി ബാലമുരളി നിർവഹിച്ചു

തേക്കടി ബാംബുഗ്രോവിലാണ് മിനി ലൈബ്രറിയുടെ പ്രവർത്തനം തുടങ്ങിയത് ഈ കൊച്ചുവായനശാല പൂട്ടിയിടാറില്ല ആർക്കും എപ്പോഴും പുസ്തകം എടുത്ത് ഇവിടെയിരുന്ന് വായിക്കാം